് കാശ്മീരിൽ പ് ജില്ലകളിൽ രണ്ട് മാത്രമാണ് തീവ്രവാദ ഭീഷണിയുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

എന്നാൽ അനധികൃതമായി പണം കണ്ടെത്തിയതിനെ തുടർന്ന് തമിഴ്നാട് വെല്ലൂരിൽ ഇന്ന് നടക്കാനിരുന്ന വോട്ടെടുപ്പ് റദ്ദാക്കുകയായിരുന്നു ത്രിപുര ഈസ്റ്റ് മണ്ഡലത്തിലെ വോട്ടെടുപ്പ് മൂന്നാം ഘട്ടത്തിലേക്ക് മാറ്റി

ഇവിടെ മധുര ഒഴികെയുള്ള മണ്ഡലങ്ങളിലെല്ലാം ആറ് മണി വരെയാണ് വോട്ടെടുപ്പ് മധുരയിൽ എട്ട് മണി വരെ വോട്ടെടുപ്പ് നടക്കും

ജമ്മുകാശ്മീരിലെ ശ്രീനഗർ ഉദ്ദംപൂർ പാർലമെന്റ് മണ്ഡലങ്ങളിലും പോളിംഗ് പുരോഗമിക്കുകയാണ്

ഓരോ മേഖലകളിലും മജിസ്ട്രേട്ട്മാരെയും ഫ്ളെയിം സ്കാഡുകളെയും നിരീക്ഷകരെയും വീഡിയോഗ്രാഫർമാരെയും നിയോഗിച്ചിട്ടുണ്ട്

പത്രിക പിൻവലിക്കാരുള്ള് അവസാന ദിവസം തിങ്കളാഴ്ചയാണ്

ഉത്തർപ്രദേശിൽ സമാജ് വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ബി ജെ പി നേതാവ് മേനകാ ഗാന്ധി സുൽത്താൻപൂർ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എസ് പി ബി എസ് പി സഖ്യ സ്ഥാനാർത്ഥി പൂനം സിംഗ് ലഖ്നൌവിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും

ഗുജറാത്തിലെ അംറേലിയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ചൈനയുമായുള്ള നയന്ത്രബന്ധം കെട്ടിപ്പടുക്കുന്നതിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി താൻ നേടിയ പരിചയം സഹായകരമായതായും അദ്ദേഹിപ്പറഞ്ഞു ബി ജെ പി അധ്യക്ഷൻ അമിത് ഷായും റാലിയിൽ പങ്കെടുത്തു

ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ ഛത്തിസ്ഗഡിലെ റായ്ഗർഗിലും ബിലാസ്പുരിലും മഹാരാഷ്ട്രയിലെ ജല്നയിലും പാർട്ടി റാലികളെ അഭിസംബോധന ചെയ്യും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ഇന്ന് യു പി യിലെ ബധൌനിലും ഗുജറാത്തിലെ ജുനഗഡ് കച്ച് എന്നിവിടങ്ങളിലും റാലികളിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യും

സുഹൃത്തിന് വേണ്ടിയാണ് പ്രചാരണത്തിന് ഇറങ്ങിയതെങ്കിൽ പോലും നടന്റെ നടപടി നിർഭാഗൃകരമായിപ്പോയെന്ന് അബ്ദുൾ മോമൻ ധാക്കയിൽ പറഞ്ഞു നേരത്തെ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി പ്രചാരണത്തിൽ പങ്കെടുത്തിന് മാപ്പ് പറഞ്ഞ ഫെർദ്ദോസ്സ് അത് മനപ്പൂർവ്വമല്ലാത്ത തെറ്റാണെന്നും അറിയിച്ചിരുന്നു മ്യാന്ദ്ദണ്ഡങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് വിസ റദ്ദാക്കിയതിനാൽ അദ്ദേഹം ചൊവ്വാഴ്ച ബംഗ്ലാദേശിലേക്ക് മടങ്ങിപ്പോയിരുന്നു

ദേശീയ നേതാക്കൾ എത്തിയതോടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ഊർജിതമായി എൻഡിഎ സ്ഥാനാർഥികളുടെ പ്രചാരണാർഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉച്ചതിരിഞ്ഞ് തിരുവനന്തപുരത്ത് എത്തും

എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് സി

ഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് നേതൃത്വം നൽകുന്നത് വൈകിട്ട് മലപ്പുറം എടപ്പാളിലും കുറ്റിപ്പുറത്തും നടക്കുന്ന റാലിയിൽ അദ്ദേഹം പങ്കെടുക്കും

ഐഎം പോളിറ്റ് ബ്യുറോ അംഗം പ്രകാശ് കാരാട്ട് ഇന്ന് പാലക്കാട് ജില്ലയിലെ വിവിധ തെരെഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ

ആന്റണി ശനിയാഴ്ച തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ യുഡിഎഫ് പ്രചാരണ യോഗങ്ങളിൽ പ്രസംഗിക്കും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നാളെ തിരുവനന്തപുരത്തും യുഡിഎഫ് സംഘടിപ്പിക്കുന്ന ത്തെർ അഭിസംബോധന ചെയ്യും

കൊല്ലപ്പെട്ട മാവോവാദികളിൽ ഒരാളുടെ തലയ്ക്ക് അഞ്ച് ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്നു

ജെറ്റ് എയർവേഴ്സിന്റെ സാമ്പത്തികൃ പ്രപ്രതിസന്ധി മറികടക്കാൻ ധനകാര്യ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മ്പ്ത്താലയം ട്വിറ്ററിൽ അറിയിച്ചു അടുത്തമാസം പത്തിനകംഇത്പൂർത്തിയാകും പണം തിരിച്ചടയ്ക്കിൽ ടിക്കറ്റ് റദ്ദാക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യം വ്യോമയാന മന്ത്രാലയ ഡയറക്ടർ ജനറലും മറ്റ് അധികാരികളും നിരീക്ഷിച്ചുവരികയാണ്

ജർമൻ ചാൻസലർ എയ്ഞ്ചല മെർക്കലിനെ അനുശോചനം അറിയിച്ചതായി പോർച്ചുഗീസ് പ്രധാനമന്ത്രി അന്റോണിയ കോസ്റ്റ ട്വിറ്ററിൽ രേഖപ്പെടുത്തി

പരീക്ഷണം വീക്ഷിക്കാൻ ഉത്ത്രക്കൊറിയൻ നേതാവ് കിം ജോങ്ങ് ഉൻ നേരിട്ട് എത്തി രാജ്യൂര്ത്ത പ്രതിരോധ സേനയുടെ വീര്യം വർദ്ധിപ്പിക്കുന്നതാണ് പ്ര പൂതിയ പരീക്ഷണമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു ് പരീക്ഷണം ശ്രദ്ധയിൽപ്പെട്ടതായി അമേരിക്കയും അറിയിച്ചു

രേഖ പരിശോധിച്ചശേഷം തിരഞ്ഞു പിടിച്ച് കൊല്ലുകയായിരുന്നു എന്ന് പോലീസ് അറിയിച്ചു ജാതീയ വിഭാഗീയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന പ്രദേശമാണ് ബലുചിസ്ഥാൻ

എൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഡെൽഹി ക്യാപിറ്റൽസുമായി ഏറ്റുമുട്ടും ന്യൂഡെൽഹിയിലെ ഫിറോസ്ഷാ കോട്ലാ സ്റ്റേഡിയത്തിൽ രാത്രി എട്ടിനാണ് മൽസരം ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ ആറുവിക്കറ്റിന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പരാജയപ്പെടുത്തിയിരുന്നു